പടിഞ്ഞാറൻ ചരക്ക് ഇടനാഴിയിലെ ന്യൂ റെവാരി ന്യൂ മദാർ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും

ഓസ്ട്രേലിയക്കെതിരെ നാളെ സിഡ്നിയിൽ ആരംഭിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു

രാജസ്ഥാൻ ഹരിയാന സംസ്ഥാനങ്ങളിലെ റെവാരി മാനേസർ നർനൌൾ ഫുലേര കിഷൻഗഢ് പ്രദേശങ്ങൾക്ക് ഈ ഇടനാഴി ഉപകാരപ്രദമാകും ഒപ്പം കത്വാസിലെ കോൺകോറിന്റെ കണ്ടെയ്നർ ഡിപ്പോയുടെ ഉപയോഗം കൂടുതൽ ഫലപ്രദമാകുകയും ചെയ്യും

ന്യൂ അതേലിയിൽ നിന്ന് ന്യൂ കിഷൻ ഗണ്ഡ് വരെ സർവീസ് നടത്തുന്ന ഒന്നരകിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ്ങ് ഹോൾ കണ്ടെയ്നർ ട്രെയിനും പ്രധാനമന്ത്രി വീഡിയോ കോൺഫെറെൻസിങ്ങിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യും നിലവിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സേവനം നടത്തുന്ന ട്രെയിനുകളുടെ നാലിരട്ടി കണ്ടെയ്നർ യൂണിറ്റുകൾ ഡബിൾ സ്റ്റാക്ക് ലോംഗ് ഹോൾ കണ്ടെയ്നർ ട്രെയിനിൽ പ്രഹിക്കാനാകും

നിയന്ത്രിതമായ രീതിയിൽ രണ്ട് വാക്സിനുകൾ ഉപയോഗിക്കാൻ ഡ്രഗ്സ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞദിവസം ആൻുമതി നൽകിയിരുന്നു

അവിടെനിന്ന് ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും അയക്കുമെന്നും കേന്ദ്ര ആരോഗൃ സെക്രട്ടറി അറിയിച്ചു

ആരോഗ്യ വിദഗ്ദ്ധർ അടങ്ങുന്ന സംഘം ഇതിനകം യാത്ര തിരിച്ചതായും എന്നാൽ ചൈനീസ് അധികൃതർ രാജ്യത്ത് പ്രവേശന അനുമതി ഇതുവരെ നൽകിയിട്ടില്ലെന്നും ഡബ്ല്യൂ എച്ച് ഒ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയാസിസ് പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

ബ്രിട്ടനിലെ സാഹചര്യം മനസിലാക്കുന്നതായും എത്രയും വേഗം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകട്ടെ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു കോവിഡ് വാക്സിൻ ലോകത്തിന് ലഭ്യമാക്കുന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങളിലുള്ള പരസ്പര സഹകരണം ഇരുനേതാക്കളും ചർച്ച ചെയ്തു

ഫ്രഞ്ച് സംഘത്തിന് ഫ്രഞ്ച് പ്രസിഡണ്ടന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഇമ്മാനുവേൽ ബോൺ ന്റേതൃത്വ് നൽകും അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഉഭയകക്ഷി താല്പര്യമുള്ള വിഷയങ്ങളിലും ഇരുരാജ്യങ്ങളും ചർച്ച ്രക്ട്ടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു

ആവശ്യമായ നൈപുണ്യവും ജാപ്പനീസ് ഭാഷ പരീക്ഷ പാസാവുകയും ചെയ്ത ഇന്ത്യൻ തൊഴിലാളികളെ ജപ്പാനിലെ പതിനാല് പ്രത്യേക മേഖലകളിൽ പ്രവേശിപ്പിക്കാൻ അംഗീകരിച്ചുള്ള സഹകരണ കരാർ ആണിത് ഇത്തരം തൊഴിലാളികളുടെ താമസത്തിന് ജപ്പാൻ സർക്കാർ പ്രത്യേക അനുമതി നൽകും

കേന്ദ്രം കേരളത്തിൽ നിയോഗിച്ചു ഉന്നതതലു സംഘം പക്ഷിപ്പനി സ്ഥിതിക്കൊപ്പം കോവിഡ് സാഹചര്യവും ് വിലയിരുത്തും ഇതുവരെ മനുഷൃരിൽ പക്ഷിപ്പനി വൈറസ് കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

അങ്കമാലി ശബരി റെയിൽപാതയുടെ മൊത്തം ചെലവിന്റെ അമ്പതു ശതമാനം സംസ്ഥാനം ഏറ്റെടുക്കും

വിചാരണക്കോടതിയുടെ വിധി റദ്ദാക്കിയ ഹൈക്കോടതി കുട്ടികളുടെ അമ്മയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അപ്പീൽ അംഗീകരിച്ചു

കേസിലെ പ്രധാന പ്രതി ഇനിയും പിടിയിലായിട്ടില്ല

രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ശ്രീ സുശീൽ കുമാർ മോഡി രാജിവെച്ച ഒഴിവിലേക്കും ശ്രീ വിനോദ് നരേയിൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെയും തുടർന്നാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

കഴിഞ്ഞ ജൂലൈ േ മുതൽ സെപ്റ്റംബർ ല വരെയുള്ള നികുതിയിലാണ് ഇളപ്പ്

ടീമിലേക്ക് തിരിച്ചെത്തിയ രോഹിത് ശർമ്മയും ശുഭ് മാൻ ഗില്ലിങ്ങും ചേർന്ന് ഇന്നിങ്സ് തുറക്കും

അവസാന രണ്ടു മത്സരങ്ങളിൽ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഗോവ